കൊല്ലം ബൈപ്പാസും തിരുവനന്തപുരം ശ്രീപദ്മനാഭ്സ്ഥാമി ക്ഷേത്ര ത്തിലെ സ്വദേശി ദർശൻ പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

പ്രമുഖ ചലച്ചിത്രകാരൻ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു

ൾ ൽ ൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കേരളത്തിലെത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും പൊതു പരി പാടികളിൽ അദ്ദേഹം പങ്കെടുക്കും വൈകീട്ട് നാലിന് തിരുവനന്ത പുരം വ്യോമസേനാ ടെക്നിക്കൽ എരിയയിൽ വിമാനം ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലിക്കോപ്റ്ററിൽ കൊല്ലത്തേക്ക് പോകും

ക്ഷേത്ര ദർശന ത്തിന് ശേഷം എട്ട് മണിയോടെ വ്യോമസേനാ ടെക്നിക്കൽ ഏരിയ യിൽ നിന്ന് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്വർണർ ജസ്റ്റിസ് പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി അൽഫോണൻസ് കണ്ണന്താനം മന്ത്രിമാരായ ജി സുധാകരൻ

മേഴ്സിക്കുട്ടിയമ്മ കെ രാജു എംപിമാരായ എൻ

പ്രേമചന്ദ്രൻ സുരേഷ് ഗോപി വി മുരളീധരൻ കെ സോമപ്രസാദ് എംഎൽഎമാരായ ഒ രാജഗോപാൽ മുകേഷ് തുടങ്ങിയവർ പങ്കെടു ക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊല്ലത്തും തിരു വനന്തപുരത്തും ഗതാഗതനിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത പദ്ധതിയായ കൊല്ലം ബൈപാസിന് ടോൾ ഒഴിവാക്കാൻ കേന്ദ്രത്തോട് ആവശ്യ പ്പെടുമെന്ന് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് ടോൾ വാങ്ങില്ല വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്രത്തിന് കത്ത യക്കും ടോൾ ഒഴിവാക്കുന്നതിനായി സംസ്ഥാനം നൽകുന്ന നിർദേശം കേന്ദ്രം പരിഗണിക്കാൻ തയാറാകണമെന്നും മന്ത്രി ആവ ശ്യപ്പെട്ടു കൊല്ലം ബൈപ്പാസിൽ അവസാന ഘട്ട ഒരുക്കങ്ങൾ വില യിരുത്താനെത്തിയതായിരുന്നു മന്ത്രി

പ്രമുഖ ചലച്ചിത്ര സംവിധായകനും കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രൻ അന്തരി ച്ചു ഇന്നലെ രാത്രി എട്ടുമണിയോടെ ചെന്നൈ അപ്പോളോ ആശുപ ത്രിയിലായിരുന്നു അന്തൃം കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയി ലായിരുന്നു അദ്ദേഹം

സംസ്കാരം നാളെ ഉച്ചയ്ക്ക് രണ്ടിന് തിരുവനന്ത പുരം ശാന്തികവാടത്തിൽ നടത്തും

വേലു ക്കൂട്ടി ഭാസമ്മ ദമ്പതികളുടെ മകനായാണ് രാജേന്ദ്രൻ ജനിച്ചത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിൽ നിന്നും ബിരുദം നേടി എറണാകുളത്ത് ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ പ്രവർത്തിക്കവെ ചല ച്ചിത്രകാരൻ പി

ബക്കറെ പരിചയപ്പെട്ടതോടെയാണ് ലെനിൻ രാജേ ന്ദ്രന്റെ ജീവിതം വഴിത്തിരിവിലെത്തിയത് ്പിന്നീട് ബക്കറിന്റെ സഹ സംവിധായകനായി ഉണർത്തുപാട്ട് എന്ന സിനിമയുടെ നിർമാതാ ക്കളിൽ ഒരാളായി

ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നടന്ന അദ്ദേഹം ഒറ്റപ്പാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം സ്ഥാനാർത്ഥിയായി കെ

നാരായണനെതിരെ മത്സരിച്ചിരുന്നു ചരിത്രത്തിലെ അപാര സാധ്യതകൾ ഡോക്യുമെന്റ് ചെയ്ത് സിനി മയിൽ പ്രയോജനപ്പെടുത്തിയ കലാകാരനായിരുന്നു ലെനിൽ രാജേ ന്ദ്രനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശ ത്തിൽ പറഞ്ഞു എൺപതുകളിൽ മധ്യവർഗ സിനിമയുടെ വക്താ വായി വന്ന ലെനിൽ രാജേന്ദ്രൻ മലയാളികൾക്ക് എക്കാലവും ഓർമി ക്കാൻ ഒരു പിടി മികച്ച ചിത്രങ്ങൾ അവശേഷിപ്പിച്ചാണ് കടന്നു പോയ തെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ബാലൻ പറഞ്ഞു

അവർക്കെതിരെ നടപടിയെടുത്താൽ തടസം നിൽക്കാൻ ഗവൺമെന്റ് ഒരുതരത്തിലും ഇടപെടില്ലെന്ന് ഇടുക്കി ജില്ലയിലെ മുട്ടത്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കി വിജിലൻസിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉന്നതങ്ങളിൽ അഴിമതി ഇല്ലാത്തതിന്റെ പേരിൽ സംസ്ഥാനം സൽപേര് നേടിയിട്ടുണ്ട് എന്നാൽ എല്ലാ തലങ്ങളിലേയും അഴിമതി ഇല്ലാതാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വിജിലൻസിന് അഴിമതിക്കെ തിരെ ശക്തമായ നിലപാട് എടുക്കാൻ ഒരു തട്ടസവും സംസ്ഥാന ത്തില്ലെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

ഇതോടെ ഭക്തിലഹരിയിൽ മുഴങ്ങിയ ശരണം വിളികൾ പൂങ്കാവനമാകെ നിറഞ്ഞു മകര വിളക്കും ജ്യോതിയും കണ്ട് ജീവിതം ധനൃമാക്കി ഭക്തർ കൂട്ടത്തോടെ മലയിറങ്ങി ശബരിമലയിൽ മകരജ്യോതി തെളിഞ്ഞതിനൊപ്പം സംസ്ഥാനത്ത് വീടുകളിലും സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും അയ്യപ്പ കർമ്മസ മിതിയുടെ നേതൃത്വത്തിൽ ദീപങ്ങൾ തെളിഞ്ഞു

ഇത്തവണത്തെ തിരു വാഭരണ യാത്ര പൊലീസ് ഹൈജാക്ക് ചെയ്തുവെന്നും ദേവസ്വം ജീവനക്കാരേയും പന്തളം കൊട്ടാരം പ്രതിനിധികളേയും അവർ നോക്കുകുത്തികളാക്കിയെന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു

പ്രൊഫ വി ടി രമയാണ് ഒൻപതാം ദിവസവും നിരാഹാരം തുടരുന്നത് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയത് നവോ ത്ഥാന ശ്രമങ്ങളാണെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം അഭിപ്രാ യപ്പെട്ടു പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിൽ ഗാന്ധിജി അനുസ്മരണ പരിപാടി രക്തസാക്ഷ്യം സമാപന സമ്മേളനം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു ഗവർണർ

കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി സിയാൽ അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സർവീസ് ആരംഭിക്കുന്നത് ചെന്നൈ ഹൈദരാബാദ് ഗോവ ഹൂബ്ലി ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോ എയർ സർവീസ് നടത്തും

കേരള സർവകലാശാല മൂൻ സിൻഡിക്കേറ്റ് അംഗം ആർ എസ് ശശികുമാറിന്റെ പരാതിയിലാണ് ലോകായുക്ത നടപടി

ഇന്ന് നടത്താനിരുന്ന ചർച്ച നാളത്തേക്ക് മാറ്റുകയായിരുന്നു

മൂന്ന് മത്സര ങ്ങളുടെ പരമ്പരയിൽ ആദ്യത്തേത് ജയിച്ച് ഓസ്ട്രേലിയ മുന്നിലാ ഇന്നു ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പരയിൽ പ്രതീക്ഷ ണ് പുലർത്താനാവൂ

ഇന്നലെ ഷാർജയിൽ ബെഹ്റിനോട് മറുപടിയില്ലാത്ത ഒരു ഗോളി നാണ് ഇന്ത്യ തോറ്റത്

തൊടു പുഴയിൽ ഹോം മാചുകളിൽ മൂന്നെണ്ണം വിജയിച്ചാണ് കേരളത്തിന്റെ കാർട്ടർ പ്രവേശനം

വയനാട്ടിലെ കൃഷ്ണഗിരിയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഗുജറാത്ത് കാർട്ടർ പോരാട്ടം ഇന്ന് തുടങ്ങും സ്വന്തം ഗ്രൌണ്ടും അവസാന മത്സരത്തിലെ അതിശക്തമായ തിരിച്ചുവരവും നൽകിയ ആത്മവിശ്വാസത്തിലാണ് കേരളം ഇന്ന് കളിക്കാനിറങ്ങുന്നത് വിനോദ സഞ്ചാര മേഖലയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ അടുത്ത വർഷത്തോടെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക യാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് ടൂറിസം സഹമന്ത്രി അൽഫോ ണൻസ് കണ്ണന്താനം കൊല്ലത്ത് പറഞ്ഞു ചടയമംഗലം ജടായു എർത്ത് സെന്റർ ഏർപ്പെടുത്തിയ പ്രഥമ ജടായു പുരസ്കാരം നടൻ നെടുമുടി വേണുവിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഓരോ മൾട്ടിപർപ്പസ് സ് റ്റേഡിയം നിർമിക്കുമെന്ന് മന്ത്രി ഇ

ജയരാജൻ അറിയിച്ചു

കണ്ണൂരിൽ ന്യൂ വിവ കേരള ഫുട്ബോൾ ക്ലബിനും അക്കാഡമിക്കും തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സിലബസ് പരിഷ്ക്കരണം ഉൾപ്പടെ ഉന്നതവിദ്യാഭ്യാസ മേഖ ലയുടെ ഉന്നമനം ലക്ഷ്യമാക്കി നൂതന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി ഡോ

കൊല്ലം എസ്